കബറടക്കം നാളെ രാവിലെ കൊച്ചിയിൽ ശബരിമലയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കുഴപ്പങ്ങൾ കുത്തിപ്പൊക്കാൻ ശ്രമി ക്കുന്ന സംഘപരിവാറുകാർക്കാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിലെ നിരോധനാജ്ഞ തീർത്ഥാടകരുടെ വരവ് കുറച്ചതായി

മുരളീധരൻ എം

കെയർഹോം പദ്ധതി അടുത്തമാസം രണ്ടിന് ആരംഭിക്കുമെന്ന് മന്ത്രി കടകം

സഹായം നൽകും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനം ഇന്ന് ആരംഭിക്കും

സി വർക്കിംഗ് പ്രസിഡന്റും വയനാട് എം പിയുമായ എം ഐ ഷാനവാസ് അന്തരിച്ചു

ഈ മാസം രണ്ടിന് അദ്ദേഹത്തെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു അഞ്ചിന് അണു ബാധയെ തുടർന്ന് ഷാനവാസിന്റെ ആരോഗ്യനില വഷളായി

ഷാനവാസ് കെ

യുവി ലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എയും എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബിയും പാസ്സായി കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാൻ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ

സി വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്

വർക്കിംഗ് പ്രസിഡന്റായി ഷാനവാസിനെ നിയമിച്ചത്

കരുണാകരൻ മുഖ്യമ ന്ത്രിയായിരിക്കെ കോൺ ഗ്രസ് രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച തിരുത്തൽ വാദ മുന്നേറ്റത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും ജി കാർത്തികേയനുമൊപ്പം മുന്ന ണിപോരാളിയായി ഷാനവാസും ഉണ്ടായിരുന്നു

കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വയനാട് മണ്ഡലം നിലനിർത്തി മാനവശേഷി വിക സന സ്റ്റാന്റിംഗ് കമ്മിറ്റി അംഗം ന്യൂനപക്ഷ മന്ത്രാലയം ഉപദേശകസമിതി അംഗം തുടങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട് ് ് ് ് ് ് മൃതദേഹം ഇന്ന് ഉച്ചയ്ക്കുശേഷം എറണാകുളം നോർത്ത് റെയിൽവെ സ്റ്റേഷൻ റോഡിലെ ഷാനവാസിന്റെ വസതിയിൽ കൊണ്ടുവരും

എം ഐ ഷാനവാസ് എം പിയുടെ നിര്യാണത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ മുതിർന്ന ബി ജെ പി നേതാവ് പി

മുകുന്ദൻ എന്നിവർ അനുശോചനം അറിയിച്ചു ശബരിമലയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഭക്തർക്കല്ല ശബരിമല കേന്ദ്രീ കരിച്ച് കുഴപ്പങ്ങൾ കുത്തിപ്പൊക്കാൻ ദുരുദ്ദേശ്യപൂർവ്വം ശ്രമം നടത്തുന്ന സംഘപ രിവാറുകാർ ക്കാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശബരിമല തീർത്ഥാടനം സംബന്ധിച്ച് ബി

പി അധ്യക്ഷൻ അമിത് ഷാ ട്വിറ്ററിൽ പ്രകടി പ്പിച്ച അഭിപ്രായത്തോട് ഫെയ്സ്ബുക്കിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അമിത് ഷായുടെ അഭിപ്രായങ്ങൾ തെറ്റിദ്ധാരണാജനകമാണെന്നും സംഘപരിവാ റുകാരുടെ പ്രചരണത്താൽ തെറ്റിദ്ധരിച്ചായിരിക്കാം അദ്ദേഹം വസ്തുതാരഹിതമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ട്വീറ്റ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീകളും കുട്ടികളും അടക്കം തീർത്ഥാടകർക്ക് ശബരിമലയിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധി മുട്ടുകളുണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സുപ്രീം കോടതി വിധി നടപ്പാ ക്കുക മാത്രമാണ് ഗവൺമെന്റ് അവിടെ ചെയ്യുന്നതെന്നും ഇതല്ലാതെ കേന്ദ്രത്തിനോ സംസ്ഥാനത്തിനോ അവിടെ മറ്റൊന്നും ചെയ്യാനില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് സ്വീകരിച്ച നിലപാടുതന്നെ അമിത്ഷായ്ക്ക് മറുപടിയാണെന്നും പിണറായി പറഞ്ഞു ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനാജ്ഞ തീർഥാടകരുടെ വരവ് കുറച്ചതായി വി

ശബരിമലയിൽ മാദ്ധ്യമപ്രവർത്തകരോട് സംസാരിക്കയായിരുന്നു അദ്ദേഹം

് ് ് ് ് ് ് ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ സമരത്തിന് മൂർച്ച കൂട്ടാ നാണ് യു ഡി എഫ് നേതാക്കൾ ഇന്നലെ പമ്പ വരെ പോയതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു മലയ്ക്ക് പോകാൻ പൊലീസ് അനുമതി നൽകിയിട്ടും പമ്പയിൽവെച്ച് യാത്ര അവസാനിപ്പി ച്ചത് എന്തിനാണെന്ന് ഇവർ ജനങ്ങളോട് വിശദീകരിക്കണമെന്നും കോടിയേരി ആവ ശൃപ്പെട്ടു കണ്ണൂർ കടന്നപ്പള്ളി പാടിയിൽ നിർമ്മിച്ച ഇ എം എസ് മന്ദിരം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മോഹൻദാസ് ശബരിമലയിൽ പറഞ്ഞു മാദ്ധ്യമങ്ങൾ പറയുന്ന രീതിയിൽ അസൌകര്യങ്ങൾ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഇല്ലെന്നും തീർഥാടകർ അസൌകര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടി ല്ലന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ രാത്രി നിയന്ത്രണങ്ങളിൽ ഇളവുവരുത്തി ശബരിമല യിൽ തങ്ങുന്നതിനും നടപ്പന്തലിൽ നാമജപം നടത്തുന്നതിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിലാണ് പൊലീസ് നേരിയ ഇളവുവരുത്തിയത് വലിയ നടപ്പന്തലിലും തിരുമുറ്റത്തുമൊഴികെ സന്നിധാനത്തിന്റെ മറ്റ് അഞ്ച് ഭാഗങ്ങളിൽ തീർത്ഥാടകർക്ക് വിരി വയ്ക്കുന്നതിന് സൌകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് ഐ

തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വലിയ നടപ്പന്ത ലിലും തിരുമുറ്റത്തും വിരി വയ്ക്കാൻ അനുവാദം നൽകുമെന്നും അദ്ദേഹം പറ ഞ്ഞു

ഇവരെ പിന്നീട് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു ് ് ് ് ് ് ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ ശബരിമല വിഷയത്തിൽ സർക്കുലർ ഇറക്കിയെന്ന വാർത്തയ്ക്ക് ബി ജെ പിയുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി

ഈ വിഷയത്തിൽ ജില്ലാ പൊലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രളയാനന്തര കേരളത്തെ പുനർനിർമ്മിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് വിഭാവനം ചെയ്ത കെയർഹോം പദ്ധതി അടുത്തമാസം രണ്ടിന് ആരം ഭിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

സഹകരണ മേഖലയെ തകർക്കാൻ എല്ലായ്പോഴും കുപ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്

എന്നാൽ നോട്ടു നിരോധനം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തി യായപ്പോൾ സഹകരണമേഖലയിലെ നിക്ഷേപം ഒന്നരലക്ഷം കോടിയിൽ നിന്ന് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയായി വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു മന്ത്രി ഇ

മെന്ന് ഫ്രഞ്ച് വികസന ഏജൻസി അറിയിച്ചു ആലുവ ഇടപ്പള്ളി വൈറ്റില പേട്ട തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷനുകളുടെ വികസനത്തിനും സഹോദരൻ അയ്യ പ്പൻ റോഡിന്റെ വികസനത്തിനുമാണ് തുക ലഭ്യമാക്കുക കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിന്റെ പുരോഗതിയിൽ ഫ്രഞ്ച് സംഘം സംതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കൊച്ചി മെട്രോ അധികൃതരുമായി ചർച്ചയെ തുടർന്നാണ് ഫ്രഞ്ച് ഏജൻസി ധനസഹായവാഗ്ദാനം അറിയിച്ചത് ധനസഹായം ലഭിക്കുന്നതോടെ കൊച്ചിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലോകനിലവാരത്തിൽ വികസിപ്പിക്കുവാൻ കഴിയുമെന്ന് കെ

ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എ

ഇന്ന് പുനരാരംഭിക്കും

സംസ്ഥാന ഗവർണർ മൃദുല സിൻഹ മേള ഉദ്ഘാടനം ചെയ്തു

കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മുന്ത്രി രാജ്യവർദ്ധൻ സിങ് റാത്തോഡ് ചടങ്ങിൽ പങ്കെടുത്തു

മലയാളസിനിമയ്ക്ക് മികച്ച പ്രാതി നിധ്യമുള്ള ഇത്തവണ ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രം ഷാജി എൻ

രോട് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ ബാലകൃഷ്ണനും ഭാര്യാ മാതാവ് ലക്ഷ്മിയുമാണ് മരിച്ചത് ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്കും മകൾക്കും ഗുരു തരമായി പരിക്കേറ്റു എടക്കാടിനടുത്ത് നടാലിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ വൈഷ്ണവ് മരിച്ചു അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു

വാടയ്ക്കൽ സ്വദേശി വിനയ്നെയാണ് കാണാതായത്

സമത്വവും ഉറപ്പുവരുത്താൻ സമസ്ത മേഖലയിലും ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി

അച്യുതാ നന്ദൻ പറഞ്ഞു വനിത ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന മൊബൈൽ ക്രഷ് ഉദ്ഘാടനം നിർവഹി ച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതരസംസ്ഥാന തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്ക് അടക്കം ആരോഗ്യപൂർണ്ണവും സുരക്ഷിതവുമായ പരിചരണം ലഭ്യമാക്കാനാണ് മൊബൈൽ ക്രഷ് ആരംഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

ത്തിന്റെ ഫലമായി സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് മുന്നറിയിപ്പ് നൽകി പത്ത നംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെലോ അലർട്ട് പ്രഖ്യാപിച്ചു

ഈ ഭാഗങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുതെന്നും കാലാവസ്ഥാകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

ലിൽ ചോർച്ച കണ്ടെത്തി

നേരത്തെയുണ്ടായ ചോർച്ച അടച്ചതിനുശേഷം വെള്ളം തുറന്ന് വിട്ടപ്പോഴാണ് കനാ ലിൽ വീണ്ടും ചോർച്ച കണ്ടെത്തിയത്

ഖ്യത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെകുറിച്ച് എറിയാട് പഞ്ചായത്തിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടി നടക്കും ബാങ്കിംഗ് സേവനങ്ങൾ ഗ്രാമീണ സ്ഥയം തൊഴിൽ പരിശീലനം തുടങ്ങിയവയെകുറിച്ച് വിദഗ്ദ്ധർ ക്ലാസെടുക്കും

ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിയിൽ മന്ത്രി കെ

ഇന്ന് വടകരയിൽ ആരംഭിക്കും